കോവിഡ് വൈറസ് ബാധ രൂക്ഷമാിയ് മ്ഹാരാഷ്ട്ര അടക്കം നാല് സംസ്ഥാനങ്ങൾ കേന്ദ്ര മന്ത്രിതുല് സ്റ്ഘം സന്ദർശിക്കുന്നു രോഗവൃാപനവും ലോക്ഡൌൺൂം വിലയിരുത്തും

്കണ്ണൂരിൽ ട്രിപ്പിൾ ലോക്ഡൌൺ

കോവിഡ് വ്യാപനത്തിൽ വിവരങ്ങൾ മറച്ചുവച്ചിട്ടില്ലെന്ന് ലോകാരോഗൃ സംഘടന വിദേശികൾക്ക് താൽക്കാലിക പ്രവേശന വിലക്കുമായി അമേരിക്ക

ഇവിടെ ലോക്ഡൌൺ മെയ് മൂന്ന് വരെ നീട്ടിയിട്ടുണ്ട്

കേന്ദ്ര അഡീഷണൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അഞ്ചംഗ മന്ത്രിതല സംഘം പരിശോധന നടത്തിയത്

ഇൻഡോറിൽ സജ്ജമാക്കിയ പൊലീസ് കൺട്രോൾ റൂമും ഹെൽപ്പ് ലൈൻ സംവിധാനവും സന്ദർശിച്ച സംഘം ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി മേഖലയിൽ ലോക്ഡൌൺ ശക്തമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും നൽകി മുംബൈയിൽ സന്ദർശനം നടത്തുന്ന ഉന്നതതല സംഘം ഇന്ന് വൈറസ് വ്യാപനം തടയുന്നതിന് സംസ്ഥാനം നടപ്പിലാക്കിയ നടപടികളെ കുറിച്ച് മഹാരാഷ്ട്രയിൽ ലോക്ഡൌൺ വിലയിരുത്തും ശക്തമാക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും മന്ത്രിതല സംഘം നൽകും സന്ദർശനത്തിന് ശേഷം സംഘം വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൈമാറും രാജസ്ഥാനിൽ ഇന്നലെ എത്തിയ സംഘം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി

സിംഗിന്റെ നേതൃത്വത്തിൽ കൌൺസിൽ യോഗം ചേരും

സംഭവം അതീവ ഗൌരവതരമാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ട്വിറ്ററിൽ കുറിച്ചു

കടന്നുപോകുമ്പോൾ പ്രതിരോധ നടപടികൾ നടപ്പാക്കുന്നതിൽ സിപിൽ സർവ്വീസ് ഉദ്യോഗസ്ഥർ വലിയ് പങ്കാണ് വഹിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

മധ്യപ്രദേശിൽ കോവിഡ് സ്ഥിതി ഗുരുതരമായതിനാൽ ആരോഗ്യമന്ത്രി ഉൾപ്പെടെ ഇന്ന് ചുമതലയേൽക്കുമെന്നാണ് റിപ്പോർട്ട്

ജില്ലയിലെ എല്ലാ ഗ്രാമങ്ങളും ഇന്ന് മുതൽ അടയ്ക്കും കണ്ണൂരിലെ എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിലും കർശന പരിശോധനകളുണ്ടാകും

വിജയ് സാഖറെയുടേയും ഉത്തരമേഖല ഐ

ഇത്തരക്കാരുടെ വണ്ടികൾ പോലീസ് പിടിച്ചെടുക്കും ജില്ലയിൽ മെഡിക്കൽ ഷോപ്പുകൾ തുറക്കാം

തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശത്ത് അതീവ ജാഗ്രത വേണ്മെന്ന് മുന്നറിയിപ്പിനെ തുടർന്നാണ് മന്ത്രി കെ

ആവശ്യമെങ്കിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പുറപ്പെടുവിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു

ടർക്കി പെറു സിിറ്റ്സർലൻഡ് ഇകഡോർ തുടങ്ങിയ രാജൃങ്ങളിൽ കൂടുതൽ മ്രണം റിപ്പോർട്ട് ചെയ്തു

കോവിഡുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അമേരിക്കയിൽ നിന്നും മറച്ചുവച്ചിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന തലവൻ ടെഡ്രോസ് അഥനോം ഗബ്രിയേസിസ് വ്യക്തമാക്കി വൈറസ് വ്യാപനം സംബന്ധിച്ച് അമേരിക്കയ്ക്ക് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു

അമേരിക്ക്ൻ പൌരന്മാരുടെ തൊഴിൽ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ത്രീരുമാനം